ത്രിദിന ഒഡീഷ സന്ദർശനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് ഭൂവനേശ്വറിൽ എത്തും

കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മപരിശോധന ഇന്ന് വോട്ടെടുപ്പ് ഏപ്രിൽ ആറിന്

പരമ്പര നേടാനൊരുങ്ങി ഇന്തൃയും ഇംഗ്ലണ്ടും

നാളെ റൂർക്കേലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൻ

തിങ്കളാഴ്ച കൊണാർക്കിലെ ക്ക് ഇന്ത്യൻ ഓയിൽ ഫൌണ്ടേഷൻ ട്രസ്റ്റ് സന്ദർശിച്ച ശേഷം രാഷ്ട്രിപ്പ്തി ഡൽഹിയിലേക്ക് മടങ്ങും

എല്ലാ മുന്നണികളും പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്

തിങ്കളാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം തെരഞ്ഞെടുപ്പ് യോഗങ്ങളും റോഡ് ഷോയും ഗൃഹ സന്ദർശനവുമുൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികളിൽ സജീവമാണ് സ്ഥാനാർത്ഥികൾ

തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചിരുന്നു

വിജയരാഘവൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു

ഡി എഫ് പ്രകടന പത്രിക ഇന്ന് പ്രകാശനം ചെയ്യുമെന്ന് ക്ക്ൺപീനർ എം

ഹസ്നൻ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആതിര ബാലൻ

ബിജെപിയുടെ വികസന നയങ്ങൾ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി മുഖ്യ മന്ത്രി മമത ബാനെർജി ഇന്ന് കിഴക്കൻ മെദിനിപ്പൂരിൽ വിവിധ റാലികളിൽ പങ്കെടുക്കും

നാമ ന്ടൂർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചിരുന്നു

പശ്ചിബംഗാളിലെ ഖരഗ്പൂർ അ അസമിലെ ഛബുവ എന്നിവിടങ്ങളിലെ പ്രചാരണ പരിപാടികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്

കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ മൂലധന ചെലവിന്റെ വിഹിതം വർദ്ധിപ്പിക്കുക ആസ്തികളിൽമേലുള്ള ധനസമ്പാദനം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ശക്തമായ നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് ധനമന്ത്രി സമ്മേളനത്തിൽ അറിയിച്ചു ദുരന്ത നിവാരണ അടിസ്ഥന സൌകര്യങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പ സിഡിആർഐയെയും അംഗങ്ങളെയും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അഭിനന്ദിച്ചു

വ്യവസായവും ആഭ്യന്തര വ്യാപാരവും പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ച് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ ഉള്ളത് കർണാടകയും ഡൽഹിയുമാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ

കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു

ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തവും ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിന്റെ ആവശ്യകതയെപ്പറ്റിയും പ്രധാനമന്ത്രി ചർച്ചയിൽ സംസാരിച്ചു

അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മണിക്കാണ് മത്സരം അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും രണ്ടു ജയം വീതം നേടി ഒപ്പത്തിനൊപ്പമാണ്

ഗ്രാം വിഭാഗത്തിൽ സെമിഫൈനലിൽ ഇടം പിടിച്ചു

ഇന്ത്യയുടെ പി

ഇന്നലെ ക്വാർട്ടർ ഫൈനലിൽ ജപ്പാന്റെ അകാനെ യമഗുച്ചിയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു സെമിയിൽ ഇടം നേടിയത്

പുരുഷവിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യസെൻ കാർട്ടർ ഫൈനലിൽ പുറത്തായി